നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുതാൻ കേരളം പോളിങ് ബൂത്തിൽ സംസ്ഥാനത്തെങ്ങും കർശന സുരക്ഷ

വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ കോവിഡ് മുൻകരുതലുകൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്

കോവിഡ് വ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖൃമന്ത്രിമാരുമായി മറ്റെന്നാൾ കൂടിക്കാഴ്ച നടത്തും

മലപ്പുറം ലോക്സഭ മണ്ഡലത്തിലേക്കുളള ഉപതെരഞ്ഞെടുപ്പും ഇന്ന് നടക്കുന്നുണ്ട്

വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ

വൈകിട്ട് ഏഴ് മണി വരെ പോളിങ് തുടരും

ഒരു ബൂത്തിൽ പരമാവധി ആയിരം പേർ മാത്രമാണ് ഉണ്ടാവുക പ്രത്യേക സുരക്ഷാ മേഖലകളാക്കി തിരിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയെയും സംസ്ഥാനത്തെമ്പാടും വിന്യസിച്ചിട്ടുണ്ട്

ഇരട്ടവോട്ട് തടയാൻ പ്രത്യേക ക്രമീകരണങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ഇരട്ട വോട്ടുള്ളവരുടെ പട്ടിക പോളിംഗ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കളക്ടർമാർ കൈമാറിയിട്ടുണ്ട് കള്ളവോട്ടിന് ശ്രമിച്ചാൽ ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളുണ്ടാവും

ജനങ്ങൾ കൂട്ടംകൂടുന്നത് തടയുന്നതിനും മറ്റ് അക്രമീസ്ക്ട്ടവങ്ങൾ കണ്ടെത്തുന്നതിനും രാവിലെ മുതൽ തന്നെ ്യ്യോൺ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

പ്രധാനമായും ഇടുക്കി കൊല്ലം പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിലെ അതിർത്തികളിലാണ് കേന്ദ്രസേനക്ക് ചുമതല നൽകിയിരിക്കുന്നത്

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുവേണം പോളിങ്ങിനെത്താൻ വോട്ടിടാനായി വീട്ടിൽ നിന്നിറങ്ങുന്നതു മുതൽ തിരികെയെത്തും വരെ മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണം കുട്ടികളെ കൂടെ കൊണ്ട് പോകരുത് രജിസ്റ്ററിൽ ഒപ്പിടുന്നതിനുള്ള പേന കയ്യിൽ കരുതുക

മുഖ്യമന്ത്രി പ്രിണ്റായി വിജയൻ പിണറായിയിലെ ആർ

മന്ത്രി ഇ

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആലപ്പുഴ മണ്ണാറശ്ശാല യു

ജെ

സംസ്ഥാന അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോട് മുടക്കല്ലൂരിലാണ് വോട്ട് ചെയ്തത് കേന്ദ്ര സഹമന്ത്രി വി

പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥി ഇ

കൂടാതെ പ്രമുഖ നേതാക്കളെല്ലാം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ബൂത്തുകളിൽ വോട്ട് ചെയ്യാനെത്തുമെന്നാണ് റിപ്പോർട്ട്

തൃശ്ശൂരിൽ നിന്നും തൊട്ടടുത്ത നിമിഷത്തെ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്

ഇതോടൊപ്പം അസമിലും പശ്ചിമ ബംഗാളിലും മൂന്നാം ഘട്ട വോട്ടെടുപ്പും രാവിലെ തന്നെ ആരംഭിച്ചു

വിദ്യാർത്ഥികൾക്ക് പരീക്ഷാക്കാലത്ത് സമ്മർദ്ദരഹിതമായ അന്തരീക്ഷം ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം

ദുരിത ബാധിത സംസ്ഥാനങ്ങളായ അസം സിക്കിം ബിഹാർ എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി അദ്ദേഹം ചർച്ച നടത്തി

അസം ബിഹാർ പശ്ചിമ ബംഗാൾ സിക്കിം തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു